കൊല്ലം ജില്ലയിലും എലിപ്പനി ബാധിച്ചതായി സംശയിക്കപ്പെടുന്ന ഒരാൾ മരിച്ചു എട്ട് പേർക്ക് രോഗം സ്ഥിരീകരിച്ചു ഇടുക്കി ജില്ലയിൽ ആറ് പേർക്ക് എലിപ്പനി സ്ഥിരീകരിച്ചിട്ടുണ്ട്

കൂടുതൽ ആളുകളിൽ രോഗം സ്ഥിരീകരിക്കുന്നുണ്ട്